സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വ്യാപക നാശനഷ്ടം

ഇടുക്കിയിൽ റെഡ് അലർട്ട്

ഒരു ഷട്ടർ കൂടി തുറന്നു

ലോക ജൈവ ഇന്ധന ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും

ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളം സൈനൃം തകർത്തു

വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അജയ് ജയറാം റിതുപർണ ദാസ് എന്നിവർ ക്വാർട്ടറിൽ

നാലു പേരെ കാണാതായി മഴക്കെടുതികൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

മലപ്പുറത്ത് അഞ്ചും വയനാട്ടിൽ മൂന്നും എറണാകുളത്ത് രണ്ടും കോഴിക്കോട് ഒരാളും മഴക്കെടുതികളിൽ മരിച്ചു

മണ്ണിടിച്ചിലിനെ തുടർന്ന് വടക്കൻ ജില്ലകളിലെ പല മേഖലകളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു

നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ റൺവ്വേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെ റദ്ദാക്കിയിരുന്നു വിമാന സർവ്വീസ് വൈകുന്നേരത്തോടെ പുനരാരംഭിച്ചു

സാസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യമാണ് നില്പ്പിലുള്ളതെന്നും ഇതിനെ നേരിടാൻ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ക്ലെക്ക്കൊണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സൈന്റും ്യാവികസേനാ തീര സുരക്ഷാസേന ദുരന്ത പ്രതികരണസേന എന്നിവയുടെ കൂടുതൽ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പെരിയാറിന്റെ ഇരു കരകളിലുള്ളവരും ചെറുതോണി പുഴയുടെയും ഡാമിന്റെ താഴെ ഭാഗത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്

പാലക്കാട് ജില്ലയിൽ അഞ്ചും ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാലുവീതവും അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്

മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞു

രക്ഷാപ്രവർത്തനത്തിന് പെട്ടെന്ന് സൈനിക വിഭാഗങ്ങളെ അയച്ചുതന്നതിന് മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി കർണാടക മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി മുഖ്യമന്ത്രിയെ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു ദുരിതാശ്വാസത്തിനായി കർണാടക ഗവൺമെന്റ് പത്ത് കോടി രൂപ അനുവദിച്ചതായി ശ്രീ എച്ച്

കേരളത്തിന്റെ ആവശ്യപ്രകാരം ബാണാസുരസാഗറിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിന് കബനി നദിയിൽ കർണാടക ഭാഗത്തുള്ള ഷട്ടറുകൾ തുറന്നതായും കർണാടക മുഖ്യമന്ത്രി അറിയിച്ചു

കർഷകർ ശാസ്ത്രജ്ഞർ സംരംഭകർ പ്പിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരെയാണ് ഡൽഹിയിൽ ന്ടക്കുന്ന ചടങ്ങിൽ അഭിസംബോധന ചെയ്യുന്നത് ജൈവ ഇന്ധന ഉല്പാദനത്തിലൂടെ ക്രൂഡ് ഓയിലിന്റെ വർദ്ധിച്ച ഇറക്കുമതി കുറയ്ക്കാനാകും പരിസ്ഥിതിക്ക് കോട്ടം വരാതെയും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നവയായും ഗ്രാമങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ മേഖലയായി ഇത് മാറും

ജൈവ ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം മേക് ഇൻ ഇന്ത്യ സ്വച്ച് ഭാരത് കർഷക ആദായം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ഗവൺമെന്റ് പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്നവയാണ് ജൈവ ഇന്ധനങ്ങളുടെ ഉല്പാദനം ജൈവ ഇന്ധനം സംബന്ധിച്ച ദേശീയനയം ഈവർഷം ജൂണിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്

എം എഫിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്ന അന്താരാഷ്ട്ര രംഗത്ത് രൂപയുടെ മൂല്യശോഷണവും എണ്ണവില വർദ്ധനയും കാർഷിക രംഗത്തെ താങ്ങുവില നടപടികളുമാണ് ഇതിന് ആക്കം കൂട്ടിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സുപ്രധാനവും വിശാലവുമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇൻഡ്യൻ സമ്പദ്വ്യവസ്ഥയുടെ നയങ്ങളെ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് ഡയറക്ടർമാരുടെ യോഗം സ്വാഗതം ചെയ്തു

സുപ്രധാന ബില്ലുകൾ ് പാസ്സാക്കിയാണ് വർഷകാല സമ്മേളനത്തിന് തിരശ്ശീല വീഴുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കു നേരെയുള്ള അക്രമങ്ങൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ ബില്ല് വിഭാവന ചെയ്യുന്നതായി സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ്മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് രാജ്യസഭയിൽ പറഞ്ഞു പ്രവാസികൾക്ക് പ്രോക്സി വോട്ട് ഭേദഗതി ലോക്സഭ ഇന്നലെ പാസ്സാക്കി

പ്രവാസികൾക്ക് പകരക്കാരെ ഉപയോഗിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുമതി നൽകുന്നതാണ് നിയുക്ത ബിൽ അതിനിടെ രാജ്യസഭ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ

എ സ്ഥാനാർത്ഥി ഹരിവംശ് തെരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മൽസരിച്ച ബി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾ എന്നിവർ പുതിയ അദ്ധ്യക്ഷനെ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സേവനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കേയാണ് തീരുമാനം മന്ത്രിസഭ നിയമന കമ്മിറ്റിയുടേതാണ് തീരുമാനം

ഹാക്കിങ്ങിന് വെല്ലുവിളിച്ച് സ്വന്തം ആധാർ നമ്പർ ട്വിറ്ററിൽ വെളിപ്പെടുത്തി വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാണ് ശ്രീ ശർമ്മ

ഭൂവിഭവ സെക്രട്ടറിയായി അനന്ത് കുമാർ സിങ്ങിനെയും സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിതനായിരുന്ന മുതിർന്ന ഐ

ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഗവൺമെന്റ് ഉറപ്പുനൽകിയതിനെ തുടർന്നാണ് നടപടി ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചീഫ് സെക്രട്ടറി ഡി

ജയിൻ നടത്തിയ ചർച്ചയിൽ ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ ആവശ്യം പരിഗണിക്കാൻ തീരുമാനമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിങ്ങ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു

പാർലമെന്ററികാര്യ സഹമന്ത്രി വിജയ് ഗോയൽ രചിച്ച ബേബാക് ബാത്ത് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രീതിയിൽ ക്രീയാത്മകമായ ചർച്ചകൾക്ക് പാർലമെന്റ് അംഗങ്ങൾ നേതൃത്വം നൽകണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാസേന കണ്ടെടുത്തു ചപ്രിയാൻ മേഖലയിലെ ഖത്ത് പഞ്ചാൽ നലയിൽ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിത്താവളം കണ്ടെത്തിയത്